മുതിർന്ന ക്രിക്കറ്റ് താരം മാധവ് ആപ്തേ അന്തരിച്ചു

ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോഴും പോളിങ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ടനിരയാണ്

നഗരപ്രദേശങ്ങളിൽ രാവിലെ മുതൽ ്തന്നെ വോട്ടർമാരുടെ നീണ്ടനിര രൂപപ്പെട്ടിരുന്നു രാവിലെ പോളിംഗ് മന്ദഗതിയിലായിരുന്നെങ്കിലും പിന്നീട് വോട്ടർമാർ കൂട്ടത്തോടെ എത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ്രജോസ് ടോം മീനച്ചിൽ പഞ്ചായത്തിലെ പൂവത്തോട്ടും എൽ ഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പാലായിലെ കാ നാട്ടുപാറയിലും വോട്ടു രേഖപ്പെടുത്തി രണ്ടു പേരും വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിക്ക് മണ്ഡലത്തിൽ വോട്ടില്ല

മാണി തുടർച്ചയായി വിജയിച്ച പാലായിൽ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയകേരളം ആകാംക്ഷയോ ടെയാണ് ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെര ഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് മുതൽ സ്വീകരിക്കും ഒക്ടോബർ ഒന്നിനാണ് സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലി ക്കുന്നതിന് അവസാന തീയ്യതി ഒക്ടോബർ മൂന്ന് ആണ് മഞ്ചേശ്വരത്തെ യു ഡിഎഫ് സ്ഥാനാർത്ഥിയെ രണ്ടു ദിവസ ത്തിനകം പ്രഖ്യാപിക്കുമെന്ന് മുസ്ലീം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അറിയിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രദേശിക ഘടകം നിർണായകമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് സമയപരിധി ഇന്നലെ അവസാനി ച്ചു

മരടിലെ അനധികൃത ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് സെക്രട്ടറിയെ സുപ്രീംകോടതി ശാസിച്ചു ഫ്ളാറ്റുകൾ പൊളിക്കാൻ എത്ര ദിവസം ്വേണ്ടി വരുമെന്ന് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിയോട് കോടതി ആവശ്യപ്പെട്ടു പ്രളയത്തിൽ എത്ര പേർ മരിച്ചുവെന്ന് ഗവൺമെന്റിന് അറിയില്ലേയെന്നും കേരള ത്തിൽ പ്രളയം ആവർത്തിച്ചിട്ടും കോടതി വിധി നടപ്പാക്കാത്ത ഗവ നടപടി ഞെട്ടലുളവാക്കുന്നതായും ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു ഇതുകൊണ്ടാണ് സംസ്ഥാനത്ത് ദുരന്തങ്ങൾ ആവർത്തി ക്കുന്നത്

ഈ നിലപാടാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ നിയമലംഘനങ്ങളും പരിശോധിക്കേണ്ടി വരുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അഭിപ്രായപ്പെട്ടു വയനാട് മെഡിക്കൽ കോളജിന്റെ സ്ഥലമെടുപ്പ് ഉൾപ്പടെ പ്രശ് നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ കോഴിക്കോട്ട് പറഞ്ഞു കേരള ഗവ നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ നിപ നേരിടുന്നതിൽ മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ നഴ്സുമാർ കാഴ്ചവെച്ചതെന്നും അവർ പറഞ്ഞു

നാളെ പൊതൂ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഐകൃരാഷ്ട്ര സംഘടനയുടെ ഉന്നതതല കാലാവസ്ഥാ ഉച്ച കോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം ന്യൂയോർക്കിൽ എത്തിയിരുന്നു ഊർജ്ജ പുനരൂപ്യോഗം സംബ ന്ധിച്ച് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും ദുരന്തത്തെ അതിജീവി ക്കുന്ന അടിസ്ഥാന മേഖലാ നിർമ്മാണം സംബന്ധിച്ച നിലപാടും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിച്ചേക്കും ഉച്ചകോടിയുടെ പ്രാരംഭ സെഷനിൽ സംസാരിക്കുന്നു പ്രമുഖ രാഷ്ട്ര നേതാക്ക ളുടെ പട്ടികയിലാണ് നരേന്ദ്രമോദിയെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ത്

ഗവൺമെന്റിനെ താഴെയിറക്കാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് സ്പീക്കർ അയോഗ്യരാ ക്കിയതിനെതിരെയാണ് എം എൽ എമാർ സുപ്രീംകോടതിയെ സമീപിച്ചത്

സ്പീക്കറുടെ നടപടി റദ്ദാക്കാതെ വന്നാൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവില്ല

ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗൊഗോയ് പുതിയ ജഡ്ജിമാർക്ക് സത്യ വാചകം ചൊല്ലിക്കൊടുത്തു

കോട്ട ക്കൽ ആര്യ വൈദ്യശാല സ്ഥാപകനായിരുന്ന വൈദ്യരത്നം പി

ദ്ദേശീപാത ചങ്കുവെട്ടി ജംഗ്ഷന് സമീപം ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആഘോഷ പരിപാടികൾ നാളെ രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്യും

ജില്ലാ കലക്ടർ ജാഫർ മലിക് ജില്ലാ പൊലീസ് മേധാവി യു അബ്ദുൾ കരീം എന്നിവരുടെ നേതൃത്വ ത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഐ എൻ എക്സ് മീഡിയാ അഴിമതി കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രി യുമായ പി ചിദംബരത്തെ മുൻ പ്രധാനമന്ത്രി മൻ മോഹൻ സിംഗും കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധിയും സന്ദർശി ച്ചു രാവിലെ തിഹാർ ജയിലെത്തിയാണ് ഇരുവരും ചിദംബരത്തെ കണ്ടത്

ഇതേ തുടർന്ന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടായിരിക്കും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് വ്യാഴാഴ്ച ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വ്യനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്

വിനൂ മങ്കടിനൊപ്പം ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായാണ് ആപ്തെ അറിയപ്പെട്ടിരുന്നത് കൊച്ചിയിൽ ഐ

ഫുട്ബോൾ സന്നാഹ മത്സര ത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കർണാടക ക്ലബ്ബ് സതേൺ യുണൈ റ്റഡ് എഫ്

എല്ലിന്റെ ആറാംപതിപ്പിന് കൊച്ചിയിൽ തുടക്കമാകുന്നത്

രാവിലെ പേരാമ്പ്ര വടക്കുമ്പാട് സ്കൂൾ കെട്ടിടവും കൊയിലാണ്ടി ബീച്ച് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും വൈകീട്ട് നാലിന് നോർക്ക റീജ്യനൽ ഓഫിസ് ഉദ്ഘാടന ചടങ്ങിലും നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പൊതുസമ്മേളന ത്തിലും മുഖ്യമന്ത്രി സംസാരിക്കും ഉത്തരക്കടലാസുകൾ ആക്രിക്കടയിൽ വിറ്റതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കലിക്കറ്റ് സർവകലാശാല അധികൃതർ തീരുമാനിച്ചു സംഭവം വിശദമായി അന്വേഷിക്കുമെന്ന് പരീക്ഷാ കൺട്രോളർ ഡോ

അഫ്ളലുൽ ഉലമ പ്രിലിമിനറി പ്രീക്ഷയുടെ മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളാണ് കഴിശേരിയിലെ കടയിൽനിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത് ഉത്തരക്കടലാസ് കടയിൽ വിൽക്കാൻ നൽകിയെന്ന വിവരം ചിലർ വൈസ്ചാൻസലർ ഡോ

ഇതിനിടെ പൊലീസ് ഉത്തരക്കടലാസ് പിടിച്ചെടുത്ത് കൊണ്ടോട്ടി സ്റ്റേഷനിലെത്തിച്ചു ഇവിടെയെത്തി ഡോ പി ശിവദാസൻ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചു സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു

മത്സ്യബന്ധനത്തിനിടെ കടലിൽ അപകടത്തിൽപ്പെടുന്നവ രുടെ സുരക്ഷ മുൻനിർത്തി ബേപ്പൂരിൽ മറൈൻ ആംബുലൻസ് സംവിധാനം സജ്ജമാക്കാൻ ഫിഷറീസ് വകുപ്പ് തീരുമാനിച്ചു അടിയന്തരവൈദ്യ സഹായം ലക്ഷ്യമിട്ടാണ് ആംബുലൻസ് ഏർപ്പെടുത്തുന്നത്

തലശ്ശേരി ചൊക്ലിയിൽ ഗവ കോളേജിനായി നിർമ്മിച്ച കെട്ടിടം മന്ത്രി ഡോ കെ

സംസ്ഥാനതലത്തിൽ നടപ്പാക്കുന്ന കുഷ്ഠരോഗനിർണയ പ്രചാരണ പരിപാടിയായിഅശ്വമേധത്തിന്റെ രണ്ടാംഘട്ടം ഇന്ന് മുതൽ ഒക്ടോബർ ആറ് വരെ നടപ്പാക്കുമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ വി

പരിശീലനം ലഭിച്ച ആശാ വർക്കർമാരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങുന്ന ടീം മുഴു വൻ വീടുകളും സന്ദർശിച്ച് രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം

കണ്ണൂർ സ്വദേശികളാണ് യുവാക്കൾ മൂന്നുപേരുമെന്ന് പോലീസ് പറഞ്ഞു

കേരള ചലച്ചിത്ര അക്കാദമിയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഇന്ത്യയും സംയുക്തമായി ടാഗോർ സെന്റിനറി തിയ്യറ്ററിലാണ് അഞ്ചു ദിവസം നീളുന്ന ചലച്ചിത്രോത്സവം സംഘ ടിപ്പിക്കുന്നത്

ഗവണ്മെന്റ് ഗസ്റ്റ് ഹൌസിലെ അദാലത്തിൽ കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത് ജെറോം പങ്കെടുക്കും

ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന നീക്കം അവസാനിപ്പിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണസമിതി കോഴിക്കോട്ട് മഹാനഗർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു തകർന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ച് പുരോഗതി കൈവരിച്ചപ്പോൾ വരുമാ നത്തിൽ കണ്ണുവെച്ച് അവ ഏറ്റെടുക്കാനാണ് ദേവസ്വം ബോർഡു കളുടെ നീക്കമെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി സംസ്ഥാന പ്രസി ഡന്റ് പ്രൊഫ

കൃഷ്ണവർമരാജ ഉദ്ഘാടനം ചെയ്തു ഹരിയാനയിൽ നിന്ന് നാട്ടിലേക്ക് വരവെ ട്രെയിൻ യാത്രക്കിടെ കാണാതായ സൈനീകന്റ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നടപടി ആരംഭിച്ചു

സൌരോർജ്ജവേലി ഫലപ്രദമല്ലാ ത്തതിനാൽ കാട്ടാനകൾ ജനവാസകേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ തടയാൻ റെയിൽഫെൻസിങോ മാങ്കുളം മോഡൽ വേലികളോ സ്ഥാപിക്കണമെന്ന് സമരസമിതി ആവശ്യ പ്പെട്ടു ആധുനിക വിദ്യാഭ്യാസത്തിൽ ഭിന്നശേഷിക്കാരെക്കുറിച്ചും അവയവദാനത്തെക്കുറിച്ചും പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് കോഴിക്കോട്ട് സക്ഷമ പ്രതിനിധിസഭ ആവശ്യപ്പെട്ടു ഭിന്നശേഷി ക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സമൂഹത്തെ കൂടുതലായി പങ്കെടുപ്പിക്കാൻ ദിവ്യാംഗമിത്രം പദ്ധതി നടപ്പാക്കാൻ സമ്മേളനം തീരുമാനിച്ചു